ന്യൂഡൽഹിയിലെ താൽക്കത്തോറ സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ശൃംഖലയുടെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യും സാധാരണക്കാർക്ക് ഏറ്റവും ലളിതമായും ചെലവ് കുറഞ്ഞതുമായ ബാങ്കിംഗ് സേവനങ്ങൾ പോസ്റ്റ് പെയ്മെന്റ്സ് ബാങ്ക് വഴി ലഭ്യമാകും

പോസ്റ്റ്ഓഫീസുകൾ പ്രവർത്തിക്കുന്ന എല്ലാ ഗ്രാമങ്ങളിലും ബാങ്കിംഗ് സേവ നങ്ങളും ഇതോടെ ലഭിക്കും അക്കൌണ്ട് ഉടമകൾക്ക് ക്യൂആർ കാർഡ് വഴി ബാങ്ക് ഇടപാടുകൾ നടത്താൻ കഴിയുന്ന സംവിധാനത്തോടെയാണ് ഇന്ത്യ പോസ്റ്റ് പെയ്മെന്റ്സ് ബാങ്കിന്റെ പ്രവർത്തനം

ബയോമെട്രിക് സാങ്കേതികവിദൃ ഉപയോഗിക്കുന്നതിനാൽ കാർഡ് നഷ്ട പ്പെട്ടാലും പണം സുരക്ഷിതമായിരിക്കും

ഇവരിൽ നാലുപേർ മലയാളികളാണെന്ന് സംശയിക്കുന്നു കോട്ടയം സ്വദേശിയായ ജിമ്മി ജേക്കബ് എന്നയാൾ മരിച്ചതായി റിപ്പോർട്ടു ണ്ട് മറ്റ് മൂന്നുപേരെ തിരിച്ചറിഞ്ഞിട്ടില്ല ബെംഗലുരുവിൽ നിന്ന് തിരുവല്ലയി ലേക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ്ബസും സ്വകാര്യ ബസ്സും പുലർച്ചെ ഒന്ന രയോടെ മാമാങ്കമെന്ന സ്ഥലത്ത് കൂട്ടിയിടിക്കുകയായിരുന്നുവെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ

ഇവരിൽ ചിലരെ സേലം ജില്ലാ ആശു പത്രിയിൽ പ്രവേശിപ്പിച്ചു രുവെട്ടെടു പ്രളയക്കെടുതിയിൽ തകർന്ന വീടുകളുടെ പുനർ നിർമ്മാണത്തിന് സംസ്ഥാനതലത്തിൽ ഏകീകൃത പദ്ധതി പരിഗണിക്കുമെന്ന് മന്ത്രി ഇ ചന്ദ്ര ശേഖരൻ അറിയിച്ചു പാലക്കാട് ജില്ലയിലെ മഴക്കെടുതി അവലോകന യോഗ ത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രേഖയില്ലാത്ത സ്ഥലങ്ങളിൽ താമസിച്ചവരെ പുനരധിവസിപ്പിക്കുന്നതിന് ഗവൺമെന്റ് ഭൂമി ലഭ്യമാക്കുന്ന കാര്യം ആലോചിക്കുമെന്നും മന്ത്രി പറഞ്ഞു വീട് തകർന്ന പട്ടികജാതി പട്ടി കവർഗ്ഗ വിഭാഗക്കാർക്ക് താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തുമെന്ന് യോഗത്തിൽ പങ്കെടുത്ത മന്ത്രി എ

ഐ

സി ജന റൽ സെക്രട്ടറിയുമായ ഗുലാംനബി ആസാദ് കൊച്ചിയിൽ പറഞ്ഞു സംസ്ഥാ നത്തിന് കേന്ദ്രം പ്രഖ്യാപിച്ച സഹായധനം ഒരു ജില്ലയുടെ ദുരിതാശാസ പ്രവർത്തനങ്ങൾക്കുപോലും തികയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു

ഇന്ന് അദ്ദേഹം മലപ്പുറം ജില്ലയിലെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും രാവിലെ കൊണ്ടോട്ടി പെരിങ്ങാ വ് ഊർങ്ങാട്ടിരി ചാലിയാർ പ്രദേശങ്ങൾ ആസാദ് നേരിൽകാണും അർപ്പെട്ടറി കോഴിക്കോട് ജില്ലയിൽ ഇനി എലിപ്പനി ബാധ നിയന്ത്രിക്കാൻ ഫലപ്രദ മായ നടപടിയെടുക്കണമെന്ന് മന്ത്രി ടി

രോഗബാധ ഉണ്ടായാൽ തുടക്കത്തിൽതന്നെ വൈദ്യസഹായം തേടണ മെന്നും ഇതിന് ആശുപത്രികളിൽ കൃത്യമായ ചികിത്സ ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു നിപ ബാധയുടെ കാലത്ത് മെഡിക്കൽ കോളജിൽ ഏർപ്പെ ടുത്തിയ പ്രത്യേക സംവിധാനങ്ങളുടെ മാതൃകയിൽ എലിപ്പനി ബാധയ്ക്കും ചികിത്സ ഒരുക്കണം ആവശ്യമെങ്കിൽ സ്ഥകാര്യ ആശുപത്രികളുടെ സേവ നവും പ്രയോജനപ്പെടുത്തണം എലിപ്പനി ബാധമൂലം ജില്ലയിൽ അഞ്ച് മര ണങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരു മായി നടത്തിയ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി

കെ ശൈലജ തിരുവനന്തപുരത്ത് അറിയിച്ചു

ഇവയ്ക്ക് പകരം പുതിയവ മാതൃകാ അംഗൻവാടികളായി പുനർ നിർമ്മിക്കും കുട്ടികൾക്ക് വീടുകളിൽ പോഷകാഹാരങ്ങൾ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ മന്ത്രി നിർദ്ദേശം നൽകി സാമൂഹ്യനീതി വകുപ്പിലെയും വനിതാ ശിശു വികസന വകുപ്പിലെയും ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗത്തിലാണ് തീരുമാനങ്ങൾ

ജില്ലാ വിക സന സമിതി യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി തകർന്ന റോഡു കളുടെ പുനരുദ്ധാരണം മറ്റന്നാൾ തുടങ്ങും ഇതിനാവശ്യമായ മെറ്റലും പാറയും ലഭ്യമാക്കാൻ ജില്ലയിലെ കാറികളുടെ പ്രവർത്തനം തിങ്കളാഴ്ച ആരംഭിക്കാനും യോഗം അനുമതി നൽകി ദേശീയപാത ബൈപ്പാസ് പുന രുദ്ധാരണ ജോലികൾ ബുധനാഴ്ച ആരംഭിക്കാനും യോഗത്തിൽ തീരുമാന മായി മഴക്കെടുതിയിൽ നാശനഷ്ടമുണ്ടായ മലയോര തീരദേശ മേഖലയിലെ മുഴുവൻ വില്ലേജുകളെയും പ്രളയബാധിത പട്ടികയിൽപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു രംഭട്ട്ട്ട്ട്ട്ട്ട്ട്ട ദുരിതബാധിതരെ സഹായിക്കാൻ സഹകരണ വകുപ്പ് ആവിഷ്കരിക്കുന്ന പദ്ധതികൾ വിശദീകരിക്കാൻ ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്ന യോഗം മുഖ്യ മന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ ഇ ചന്ദ്രശേഖരൻ എ സി മൊയ്തീൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവർ പങ്കെടുക്കും സഹകരണ സംഘങ്ങളുടെ പ്രസി ഡന്റുമാർ സെക്രട്ടറിമാർ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ സംയുക്ത യോഗമാണ് വൈകീട്ട് ചേരുന്നത്

പകർച്ചവ്യാധി തടയാം ആരോഗ്യകേരളം സൃഷ്ടിക്കാം എന്ന സന്ദേശത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ

നിലമ്പൂർ പൊന്നാനി കൊണ്ടോട്ടി താലൂക്കുകളിലാണ് ഇപ്പോൾ ക്യാമ്പുള്ളത്

അർപ്പെട്ടറി പത്തനംതിട്ട ജില്ലയിലെ ദുരിതബാധിത പ്രദേശങ്ങളിൽ കേന്ദ്രസംഘം സന്ദർശനം നടത്തി

എസ്

നാലുലക്ഷത്തോളം ഉപഭോക്താ ക്കൾക്കും നാലായിരത്തോളം ട്രാൻസ്ഫോർമറുകൾക്കും ഇതിനകം വൈദ്യു തിബന്ധം പുനഃസ്ഥാപിച്ചു

സി വിഭാഗങ്ങളുടെ കണക്ക് എടുക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു മൂന്നുവർഷം കൊണ്ട് സെൻസസ് നടപടി ക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്

മികച്ച തുടക്കത്തിന് ശേഷം തകർച്ച നേരിട്ട ടീം ഇന്ത്യയെ ചേതേശ്വർ പൂജാരയുടെ സെഞ്ചുറിയാണ് കരകയറ്റിയ ത്

രണ്ടാംദിവസം കളി നിർത്തുമ്പോൾ ഇംഗ്ലണ്ട് വിക്കറ്റ് നഷ്ടമാകാതെ ആറ് റൺസ് എടുത്തിട്ടുണ്ട്

ഫൈനലിൽ ജപ്പാൻ ഒന്നിനെതിരെ രണ്ട് ഗോളിന് ഇന്ത്യയെ തോൽപ്പിച്ചു ഗെയിംസിലെ പതിമൂന്നാം ദിവസമായ ഇന്നലെ ഇന്ത്യ തുഴച്ചിലിൽ രണ്ട് വെള്ളിയും നേടി സ്കാഷ് പുരുഷ ടീമും ബോക്സിംഗിൽ വികാസ് കൃഷ്ണനും വെങ്കലം നേടി

ഏഷ്യൻ ഗെയിംസ് മെഡലുകളുടെ എണ്ണത്തിൽ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടത്തിലെത്തിയിരിക്കുകയാണ് രുവെട്ടിരു കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തന സജ്ജമാക്കുന്നതിന്റെ മുന്നോടിയായി കാലിബ്രേഷൻ പരിശോധന നടത്തി എയർപോർട്ട് അതോ റിറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന

ഡി ടാറ്റ മെമ്മോ റിയൽ പുരസ്കാരത്തിന് എറണാകുളം ജില്ലയെ തെരഞ്ഞെടുത്തു പ്രസവ രക്ഷ കുടുംബാസൂത്രണം പരിസര ശുചീകരണം തുടങ്ങിയ മേഖലകളിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ജില്ലയെ തെരഞ്ഞെടുത്തത്

കൊല്ലം പന്മന ആശ്രമത്തിൽ ജയന്തി സമ്മേളനം രാവിലെ ജസ്റ്റിസ് ബി കെമാൽ പാഷ ഉദ്ഘാടനം ചെയ്യും